ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പ്രളയം സംസ്ഥാനത്തിന്റെ ജൈവ വൈവിധ്യ മേഖലയി ലുണ്ടാക്കിയ ആഘാതം സമഗ്രമായി പഠിക്കുമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാനം വിശദമായി പഠിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ഹർഷ്വർധൻ അറിയിച്ചു പി കെ ശശി എം എൽ എയ്ക്കെതിരെ പാർട്ടി പൊളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് എസ് രാമചന്ദ്രൻപി ളള ഇന്ധനവില ഇന്നും വർദ്ധിച്ചു

സ്വർണ്ണം പ്രളയത്തിൽ തകർന്ന കേരളത്തിന് ആരോഗ്യ രംഗത്ത് ആവശ്യമായ എല്ലാ സഹായവും മരുന്നുകളും കേന്ദ്രഗവൺമെന്റ് നൽകുമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ജെ

സംസ്ഥാനത്ത് ഉണ്ടായത് വലിയ ദുരന്തമാണെന്നും സംസ്ഥാന ആരോഗൃ വകുപ്പുമന്ത്രി യുമായി ചർച്ച ചെയ്ത് സഹായകാര്യത്തിൽ തീരുമാന മെടുക്കുമെന്നും നദ്ദ വൃക്തമാക്കി നിലവിൽ കേരളത്തിനാവശൃമായ മരുന്നുകളെല്ലാം കേന്ദ്രം നൽകിയിട്ടുണ്ട് പ്രളയത്തിൽ പ്രവർത്തനം നിലച്ച ആശുപത്രികൾ സാധാരണ നിലയിലാക്കാൻ സംസ്ഥാനം നടത്തിയത് നല്ല മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പുനഃരധിവാസ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും ഭാവികാര്യ ങ്ങൾ തീരുമാനിക്കാനുമാണ് തന്റെ സന്ദർശനമെന്ന് നദ്ദ വ്യക്തമാക്കി സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ട് നിലവിലു ണ്ടെന്നും ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു ചാലക്കുടി താലൂക്ക് ആശുപത്രിയും ദുരിതാശ്വാസ കൃാമ്പുകളിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിച്ചു

ഉച്ചയ്ക്ക് ശേഷം എറണാകുളത്തെ പ്രള യബാധിത പ്രദേശങ്ങൾ കേന്ദ്രമന്ത്രി സന്ദർശിക്കും തുടർന്ന് മന്ത്രി കെ കെ ശൈലജയുമായി അദ്ദേഹം ചർച്ച നടത്തും

സംസ്ഥാന ജൈവ വൈവിധൃ ബോർഡിന്റെ നേതൃത്വ ത്തിലാണ് ഈ മേഖലയിലെ മാറ്റം പഠിക്കുന്നത്

പ്രാദേശികമായി സൂക്ഷ്മമായ സർവെ നടത്താനാണ് തീരുമാനമെന്നും ഒരു മാസത്തിനകം ഇത് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഈ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്ത ലത്തിലാകും സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനത്തി നുതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

അശാസ്ത്രീയ നിർമ്മാണങ്ങളാണ് മൂന്നാറിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമെന്ന് പ്രകൃതി ദുരന്തങ്ങൾ പഠിക്കാനെത്തിയ ജിയോളജിക്കൽ സർവെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മുരളീധരൻ ഇടുക്കിയിൽ പറഞ്ഞു കുന്നുകൾ ഇടിച്ച് വലിയ നിർമ്മാണങ്ങൾ നടത്തും മുമ്പ് മണ്ണ് നീക്കം ചെയ്യുന്നതിന് ബദലായി ശാസ്ത്രീയ് മാർഗ് ങ്ങൾ സ്വീകരിക്കണം എന്നാൽ കേന്ദ്ര ഭൌമ ശാസ്ത്ര സംഘം നൽകിയ നിർദ്ദേശങ്ങൾ പലപ്പോഴും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഉരുൾപൊട്ട ലുകൾ ഉണ്ടായ ഇടുക്കിയിൽ ഒരു മാസത്തോളം ജി

ഉരുൾപൊട്ടിലിനെ തുടർന്ന് പാർക്കിന് സമീപത്തെ മണ്ണ് ഒലിച്ച് പ്പോയ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾ ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും തുടങ്ങിയി രുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിദഗ്ധ സംഘത്തിന്റെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പ്രവൃത്തികൾ പുനഃരാരംഭിക്കുന്ന കാര്യത്തിൽ തീരു മാനമെടുക്കാൻ പാടുളളൂ എന്നാണ് തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരം നൽകിയ സ്റ്റോപ്മെമ്മോയിൽ പറയു ന്നത് ലലലലലലലലലലലലല സംസ്ഥാനത്തുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാ ണെന്ന് പി ടി തോമസ് എം എൽ എ ആരോപിച്ചു ഡാം മാനേജ്മെന്റിൽ

മുഴുവൻ അണക്ക ട്ടുകളും ഒരുമിച്ച് തുറന്നുവിടാൻ ഉത്തരവ് നൽകിയത് ആരാണെന്ന് ഗവൺമെന്റ് വൃക്തമാക്കണമെന്നും സംഭ വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം കൊച്ചിയിൽ ആവശ്യപ്പെട്ടു

കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതലഭൃതയിൽ കുറവു വന്നതാണ് നിയ ന്ത്രണ മേർപ്പെടുത്താൻ കാരണം

ഈ നിലയങ്ങളിലെ രണ്ടു വീതം കേന്ദ്രങ്ങൾ തകരാറിലായതിനെ തുടർന്നാണിത് ലോവർ പെരിയാർ പന്നിയാർ പെരിങ്ങൽകുത്ത് തുടങ്ങിയ ജലവൈദ്യുത നിലയങ്ങളും മറ്റു നാല് ചെറു കിട നിലയങ്ങളും വെളളപ്പൊക്കത്തിൽ തകരാറിലായി രിക്കുകയാണ് ഇവിടങ്ങളിൽ നിന്ന് ഉത്പാദനം പുനഃ രാരംഭിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് ലലലലലലലലലലലല പി കെ ശശി എം എൽ എയ്ക്കെതിരെ പാർട്ടി പി ബിയ്ക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് സി പി ഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിളള ന്യൂഡൽഹിയിൽ പറഞ്ഞു പാർട്ടിക്ക് ലഭിച്ച പരാതി പൊലീസിനെ ഏൽപ്പിക്കാനാവില്ലെന്നും നിയമപരമായി പരാതിപ്പെടാൻ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ടന്നും അദ്ദേഹം വൃക്തമാക്കി

ക്രേന്ദ്ര നേ തൃ ത്യത്തിന് പരാതി ലഭിക്കുന്നതിന് മുമ്പ് വിഷയത്തിൽ സംസ്ഥാനത്ത് നടപടിയെടുത്തിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും അവർ ന്യൂഡൽഹിയിൽ പറഞ്ഞു പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ പി കെ ശശി എം എൽ എ പങ്കെടുത്ത പൊതുപരിപാടിക്കിടെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പൊലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

ഭരണ സംഘടനാതലത്തിലെ വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്യും

സമീപ്പകാലത്ത് ആദ്യമായാണ് ഇത്രയും വർദ്ധന

അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയ രുന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയു ന്നതുമാണ് ഇന്ധനവില കൂടാൻ കാരണം ലലലലലലലലലലലലല സംസ്ഥാനത്തെ നാല് സ്വാശ്രയ മെഡിക്കൽ കോളേ ജുകളിലെ പ്രവേശനം സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതി ഇന്ന് അന്തിമവാദം കേൾക്കും തൊടുപുഴ അ സ്ഹർ വയനാട് ഡി എം പാലക്കാട് പി കെ ദാസ് വർക്കല എസ് ആർ കോളേജുകൾക്ക് ഹൈക്കോടതി പ്രവേശനാനുമതി നൽകിയത് ബുധനാഴ്ച സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു

ജസ്റ്റിസ് അരുൺ മിശ്ര അധൃക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ചാങ്വോണിൽ നടക്കുന്ന ലോക ഷൂട്ടിംഗ് ചാമ്പൃൻഷിപ്പിൽ ജൂനിയർ പുരുഷൻമാ രുടെ പത്ത് മീറ്റർ എയർറൈഫിൾ വിഭാഗത്തിൽ ഇന്ത്യ യുടെ ഹൃദയ് ഹസാരിക സ്വർണം നേടി

എലവേനിൽ വലരിവൻ ശ്രേയ അഗർവാൾ മാനിനി കൌശിക് എന്നിവരടങ്ങിയ ടീമാണ് സ്വർണം നേടിയത്

പരമ്പര തോറ്റെങ്കിലും അവസാന ടെസ്റ്റിൽ ജയിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കളിക്കിറങ്ങു ന്നത്

ഏഴാം യു എസ് ഓപ്പൺ കിരീടമാണ് സെറീന ലക്ഷ്യമിടുന്നത്

ഗവൺമെന്റ് സംവിധാനങ്ങളു മായി സഹകരിച്ച് സമസ്ത കേരള ജം ഇയ്യത്തുൽ ഉലമ കേരള മുസ്ലീം ജമാഅത്ത് എന്നീ സംഘടനകളുടെ കീഴിൽ എസ് എസ് എഫ് എസ് എം എ എസ് ജെ എം എന്നീ ഘടകങ്ങളുടെ സഹകരണത്തോടെയാണ് വീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു

ലലലലലലലലലലലല കോഴിക്കോട് ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾ വ്യാപകമാകുന്നത് തടയുന്നതിന് നാളെയും മറ്റന്നാളും സ്പെഷ്യൽ ഡ്രൈവ് നടത്തും

ലലലലലലലലലലലലല നിറവ് വേങ്ങേരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാഭരണകൂടം നഗരസഭ വിവിധ പരിസ്ഥിതി സംഘ ടനകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ഓപ്പറേഷൻ കനോലികനാൽ ഒന്നാം ഘട്ടം പൂർത്തിയാ കുന്നു